കാർഷികവായ്പാ മൊറട്ടോറിയ പ്രഖ്യാപനത്തിൽ തെര ഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ വീശ്ദീകരണം തേടിയതായി മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പ്രളയം സംബന്ധിച്ച അമിക്കസ്ക്യൂറി റിപ്പോർട്ട് വായിക്കാ തെയാണ് ഇടത് നേതാക്കൾ വിമർശനമുന്നയിക്കുന്നതെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല മുസ്ലിം ലീഗ് വൈറസാണെന്ന യുപി മുഖ്യമന്ത്രിയുടെ ആരോ പണം സ്ംഘടനക്കെതിരെയാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിളള ബിജെപി പ്രകടനപത്രിക മറ്റന്നാൾ പുറത്തിറക്കും തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂരമർദ്ദനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഏഴുവയസ്സുകാരൻ മരിച്ചു

ഏറ്റവും കൂടുതൽ വോട്ടർമാർ മലപ്പുറം ജില്ലയിലാണ്

കോഴി ക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പ്രവാസികൾ വോട്ടർ പട്ടികയിൽ ഉള്ളത്

സംസ്ഥാനത്ത് അനധികൃതമായി സ്ഥാപിച്ചിരുന്ന ഏഴ് ലക്ഷത്തി പതിനയ്യായിരത്തിൽ പരം പ്രച്ചാർണ് സാമഗ്രികൾ ഇതി നകം മാറ്റി

നൽകിയ അനുമതി അപ്പേക്ഷയുടെ കാര്യത്തിൽ തീരുമാനം ആയിട്ടില്ലെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതേപറ്റി കൂടു തൽ വിശദീകരണം തേട്ടിയതായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീ സർ അറിയിച്ചു സിപിഐഎമ്മിന് തെരഞ്ഞെടുപ്പിന് ശേഷം ദേശീയപാർട്ടി പദവി നഷ്ടപ്പെടാൻ പോവുന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണ റായി വിജയൻ സ്ഥാനത്തും അസ്ഥാനത്തും രാഹുൽഗാന്ധിയെ വിമർശിക്കുന്നതെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല കുറ്റ പ്പെടുത്തി രാഹുൽഗാന്ധിയുടെ പോരാട്ടം ബിജെപിക്കും നരേന്ദ്ര മോദിക്കും എതിരാണെന്ന് അദ്ദേഹം കൊച്ചിയിൽ മീറ്റ് ദി പ്രസിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ബിജെപി വർഗീയത പ്രചരിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ഇന്ത്യൻ യുണിയൻ മുസ്ലിം ലീഗ് മതേ തര പാർട്ടിയാണെന്നും വിഷയത്തിൽ യു പി മുഖ്യമന്ത്രിയുടെ അഭിപ്രായം ഗുരുതര ചട്ടലംഘനമാണെന്നും ചെന്നിത്തല പറഞ്ഞു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നട പടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രളയം സംബന്ധിച്ച് അമിക്കസ് ക്യൂറി ഹൈക്കോടതിക്ക് നൽകിയ റിപ്പോർട്ട് വായിച്ചു നോക്കാതെയാണ് മുഖ്യമന്ത്രി പിണ റായി വിജയന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും റിപ്പോർട്ടിനെ വിമർശിക്കുകയും നിരാകരിക്കു കയും ചെയ്യുന്നതെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല കുറ്റ പ്പെടുത്തി

ഭയപ്പാടും വസ്തുതകൾ മറച്ചുവെക്കാനുളള ശ്രമവുമാണ് ഇതിന് പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞു പ്രളയകാര്യത്തിൽ ഗവൺമെന്റിന് ഗുരുത്രമായ വീഴ്ചയുണ്ടാ യെന്ന പ്രതിപക്ഷ വിമർശനം ശരിവെയ്ക്കുന്നതാണ് റിപ്പോർട്ടെന്ന് അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു

ലീഗ് വൈറസല്ല ആന്റി വൈറസാണെന്നും തെരഞ്ഞെടൂപ്പ് കമ്മീഷൻ അംഗീകരിച്ച പാർട്ടിയാണിതെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു തമിഴ്നാട്ടിൽ ലീഗിൽ നിന്ന് പിരിഞ്ഞുപോയ ഒരു വിഭാഗം എഐഎഡിഎംകെ ബിജെപി മുന്നണിയിൽ പ്രവർത്തിക്കുന്നു ണ്ടെന്ന കാര്യം വൈറസ് ആരോപണമുന്നയിക്കുന്നവർ ഓർക്കണ മെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുസ്ലിം ലീഗ് വൈറസാണെന്ന് ആരോപിച്ചത് ലീഗിനെതിരായാണെന്നും മുസ്ലിം കൾക്കെതിരായല്ലെന്നും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിളള പറഞ്ഞു

പല മണ്ഡലങ്ങളിലും എൻഡിഎ ക്കെതിരെ എൽഡിഎഫും യുഡിഎഫും ഒന്നിച്ചു നിൽക്കുകയാണെന്നും ശ്രീധരൻപിളള പറഞ്ഞു

കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ എൽ ഡി എഫ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി എൽ ഡി എഫ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം ക്രമ്മറ്റി കൺവീ നറും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ നേതാവുമായ പ്രി എ മുഹ മ്മദ് റിയാസ് ആണ് പരാതി നൽകിയത് ഉത്രഞ്ഞെടുപ്പ് ചട്ട നി യമ ലംഘനങ്ങളെ പറ്റിയും പണിമിടപാടുകളെ കുറിച്ചും അന്വേ ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പരാതി തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ സ്റ്റ്നിധ്യത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം മറ്റുന്നാൾ വൈകിട്ട് ചേരുമെന്ന് കണ്ണൂർ ജില്ലാ കലക്ടർ മിർ മുഹമ്മദലി അറിയിച്ചു പോളിംഗ് സ്റ്റേഷനുകളിലെ സൌകര്യങ്ങൾ വിലയിരുത്താൻ തെരഞ്ഞെടുക്ക പ്പെട്ട സ്ഥലങ്ങൾ നിരീക്ഷകർ സന്ദർശിക്കും പൊതുജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നിരീക്ഷകരെ നേരിൽ കാണാൻ കണ്ണൂരിൽ സൌക ര്യമൊരുക്കിയതായും കലക്ടർ അറിയിച്ചു

പോളിംഗ് ഓഫീസർ മുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ വരെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ മുഴു വൻ പേരും വനിതകളായിരിക്കും ഇവിടെ ബിഎൽഒ യും വനി തയായിരിക്കും തളിപ്പറമ്പ് ഇരിക്കൂർ അഴീക്കോട് കണ്ണൂർ ധർമടം മട്ടന്നൂർ പേരാവൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലെ ഒന്നു വീതം വോട്ടെ ടുപ്പ് കേന്ദ്രങ്ങളാണ് പൂർണമായും വനിതാ ഉദ്യോഗസ്ഥരുടെ നിയ ന്ത്രണത്തിലാവുക

ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഒന്നു വീതം പോളിംഗ് സ്റ്റേഷനുകളെയാണ് ഇതി നായി തെരഞ്ഞെടുത്തിരിക്കുന്നത് കുടിവെള്ളം വെളിച്ചം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ടോയ്ലറ്റ് സൌകര്യം വോട്ടർ സഹായകേന്ദ്രം ഭിന്നശേ ഷിക്കാർക്ക് റാംപ് സംവിധാനം വീൽചെയർ തുടങ്ങിയവ മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളിലുണ്ടാവും

സിപിഐ മാവോയിസ്റ്റ് നാടുക്ക്ാണി ഏരിയാകമ്മിറ്റി യുടെ പേരിലാണ് ലഘുലേഖ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതിക്കേസിൽ എൻഫോഴ്സ് മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച കുറ്റപ്രത്രം ഉച്ചകഴിഞ്ഞ് ഡൽഹി പട്യാല ഹൌസ് കോടതി പരിഗണിക്കും അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതിക്കേസിൽ ഇടനിലക്കാരനായ ക്രിസ്റ്റ്യൻ മിഷേലിനെതിരെ എൻഫോഴ്സ് മെൻറ് ഡയറ്ക്ടറേറ്റ് സമർപ്പിച്ച നാലാമത് കുറ്റപത്രമാണ് കോട്ടതി ഇന്ന് പരിഗണിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബിജെപി പ്രകടനപത്രിക മറ്റ ന്നാൾ പുറത്തിറക്കും

പ്രധാന മന്ത്രി ന്രേന്ദ്ര്മോദിയും പാർട്ടി അധ്യക്ഷൻ അമിത്ഷായും ചേർന്നാണ് ന്യൂഡൽഹിയിൽ പത്രിക പുറത്തിറക്കുക ഭീകരതക്കെതിരെ ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയെ പിന്തുണ യ്ക്കുമ്പോൾ രാജ്യത്തെ പ്രതിപക്ഷം പാക്കിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി സുഷമാ സ്വരാജ് കുറ്റപ്പെടുത്തി ഭീകരത പ്രശ്നമല്ലെങ്കിൽ കോൺഗ്രസ് അധ്യക്ഷൻ എസ് പി ജി സുരക്ഷ ഒഴിവാക്കാൻ തയ്യാറാകണമെന്ന് അവർ ഹൈദ്രബാദിൽ പറഞ്ഞു

ബിജെപി കോൺഗ്രസ് മുന്നണികളാണ് പ്രധാനമായും മത്സരരം ഗത്തുളളത് എല്ലാവരും വോട്ട് ചെയ്യണമെന്ന സന്ദേശം പതിച്ച ഹിമസാഗർ എക്സ്പ്രസിന് തിരുവനന്തപുരം റെയിൽവെ സ്റ്റേഷ നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും റെയിൽവെയും സ്വീകരണമൊരു ക്കി

കേരള എക്സ്പ്രസ് ഹൌറ എക്സ്പ്രസ് ഗോഹട്ടി എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ വരുംദിവസങ്ങളിൽ തൃരഞ്ഞെടുപ്പ് ബോധവത്കര ണവുമായി സർവീസ് നടത്തും തൊടുപുഴയിൽ അമ്മയുടെ സൂഹൃത്തിന്റെ ക്രൂരമർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഏഴു വയസ്സുകാ രൻ മരിച്ചു ഒരാഴ്ചയിലധികമാ്യി വെന്റിലേറ്റർ സഹായത്തോടെ യാണ് കുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരുന്നത് തലച്ചോറിനേറ്റ ഗുരുതരമായ പരിക്കാണ് മരണത്തിന് കാരണമായത് മസ്തിഷ്ക മരണം നേരത്ത് ്തന്നെ ഉണ്ടായെങ്കിലും ജീവിതത്തിലേക്ക് മടങ്ങി യെത്താൻ വിദൂരസാധ്യതയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താനാണ് വെന്റിലേറ്ററിൽ തന്നെ കിടത്തിയത്

ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ തന്നെ കുട്ടിയുടെ തലച്ചോ റിലേക്ക് രക്തപ്രവാഹം തടസ്സപ്പെട്ട നിലയിലായിരുന്നു

സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വയ നാട്ടിലെ ആദിവാസി യുവതി ശ്രീധന്യ സുരേഷിനെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി അഭിനന്ദിച്ചു കഠിനാധാനവും ആത്മ സമർപ്പണവുമാണ് ശ്രീധന്യയെ വിജയത്തിലെത്തിച്ചതെന്ന് രാഹുൽ ട്ടിറ്ററിൽ കുറിച്ചു

സി ബി എസ് ഇ റീജിയണൽ ഡയരക്ടർക്ക് ഇതിലും കുറഞ്ഞ ദിവസം ക്ലാസ് നട ത്താൻ അനുമതി നൽകാമെന്നും കോടതി വൃക്തമാക്കി വേനൽ ചൂട് കുട്ടികളെ ബാധിക്കാത്ത വിധത്തിൽ ശുദ്ധജലം ഫാൻ ടോയ്ലറ്റ് സൌകര്യം എന്നിവ വില്ലയിരുത്തിയാകണം അനുമതിയെന്നും കോടതി നിർദ്ദേശിച്ചു

മലപ്പുറം സ്വദേശി ശുഹൈബ് അലിയാണ് അഹമ്മദാബ്പാദ് വിമാനത്താവളത്തിൽ പിടിയിലായത് വർക്കലയിൽ എത്തിച്ച പ്രതിയെ കോടതിയിൽ ഹാജരാക്കി

കേസിൽ മറ്റു പ്രപ്പതികൾക്കായി പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കി കോഴിക്കോട്ട് ട്രാൻസ്ജെൻഡർ ശാലുവിന്റെ കൊലപാത കവുമായി ബന്ധപ്പെട്ട് ഒരാൾ പിടിയിലായി തമിഴ്നാട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് തിങ്കളാഴ്ചയാണ് കെഎസ്ആർടിസിബസ് സ്റ്റാൻഡിനു സമീപത്തെ ഇടവഴിയിൽ ശാലുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്